വിശ്വാസികളെ വേദനിപ്പിക്കുന്ന നടപടിയെന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് ബി ജെ പി

യുവാക്കളിൽ ശാസ്ത്രബോധം വളർത്തുക ലക്ഷ്യം

കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ബിൽ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷം സഭ ബഹിഷ്ക്കരിച്ചെങ്കിലും ലോക്സഭ ബിൽ കഴിഞ്ഞയാഴ്ച പാസ്സാക്കിയിരുന്നു

വോയിസ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ഓർഡിനൻസിന് പകരമുള്ള ബില്ലാണ് രാജൃസഭയിൽ അവതരിപ്പിക്കുന്നത്

മൂന്ന് വർഷം വരെ തടവുശിക്ഷയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് ബിൽ പരിശോധനയ്ക്കായി സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്സ് നയിക്കുന്ന പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിച്ചിരുന്നു നിർബന്ധമായും സഭയിലെത്തണമെന്ന് നിർദേശിച്ച് ബിജെപിയും കോൺഗ്രസും പാർട്ടി എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്

മുത്തലാഖ് നിരോധന ഓർഡിനൻസിനെതിരെ കോൺഗ്രസിന്റെ പ്രമേയവും പുതിയ ബില്ലിനൊപ്പം ഇന്ന് രാജ്യസഭ പരിഗണിക്കും നിലവിൽ ഭരണപക്ഷത്തിന് രാജ്യസഭയിൽ ഭൂരിപ്പ്ക്ഷമില്ലാത്ത സ്ഥിതിക്ക് പ്രതിപക്ഷത്തെ ഓരോ കക്ഷികളുടെയും നിലപാട് നിർണായകമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനി ബിന്ദുവും മലപ്പുറം സ്വദേശിനി കനക ദുർഗ്ഗയുമാണ് ദർശനത്തിനെത്തിയത് ശബരിമലയിൽ യുവതികൾ കയറിയത് വസ്തുതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്ഥിരീകരിച്ചു

സ്ത്രീകൾ ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്

യുവതികൾ ദർശനം നടത്തിയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ശബരിമല നട അടച്ചു

ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി കൂടിയാലോചിച്ച് തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ദേവസ്വാ ബോർഡ് പ്രസിഡന്റ് എ

നേരത്തെയുള്ള തീരുമാനപ്രകാരമാണ് ശുദ്ധിക്രിയ നടത്തിയതെന്ന് അദ്ദേഹം അറിയിച്ചു ആചാരലംഘനത്തിനെതിരെ ശക്തമായ ശബരിമല പ്രതിഷേധം ഉയരുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുപോവുക എന്നത് ഗവൺമെന്റിന്റെ തീരുമാനമല്ലെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു

ശബരിമല തന്ത്രി ഭരണഘടന ലംഘനം നടത്തിയതായി സി

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

മുഖ്യമന്ത്രിയുടെ വാശിയാണ് ശബരിമലയിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ നിയമപോരാട്ടം നടത്തുമെന്നും നട അടച്ച തന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും എൻ

ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും പെരുന്നയിൽ അറിയിച്ചു

എസ് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന ക്ഷേത്രമ്പിർമ്മാണ വിഷയത്തിൽ ഗുണകരമായ ചുവടുവയ്പ്പാണെന്ന് ആര്

എസ് ജോയിന്റ് ജനറൽ സെക്രട്ടറി ദത്താത്രിയു ഹോസബോലെ അറിയിച്ചു

ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ജി എസ് ടി വഴിയുള്ള സമാഹരണം ഒരു ലക്ഷം കോടി രൂപ കഴിഞ്ഞതായും ധനമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി ലൈസ്റ്റ്ൻസ് നിർബന്ധമായും നേടിയിരിക്കേണ്ട പ്രതിരോധ ഉൽപ്പുന്നങ്ങളുടെ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്

ഡി ദേവഗൌഡ പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ബിജെപി കർണ്ണാടക അദ്ധ്യക്ഷൻ ബി

മാത്രം വായ്പ എഴുതിത്തള്ളിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സംസ്ഥാനം പുറത്തിറക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ബംഗളുരുവിൽ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ ശ്രീ

ഒ

ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് രാ്ജ്യത്തെ യുവാക്കളിൽ അവബോധ മുണ്ടാക്കുകയാണ് ലക്ഷ്യം

ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ചും അത് സാധാരണ പൌരന് നൽകുന്ന സേവനം സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു

കനത്ത മഞ്ഞു വീഴ്ചയെ തുടർന്ന് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത താൽക്കാലികമായി അടച്ചു ശ്രീനഗർ ലേ ദേശീയപാതയും മുഗൾ റോഡും കഴിഞ്ഞ ഒരു മാസമായി അടച്ചിട്ടിരിക്കുകയാണ്

വോയിസ് മഞ്ഞ് വീഴ്ച്ചക്ക് പുറമെ ശ്രീനഗർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ അനുഭവപ്പെട്ടതും ജനജീവിതത്തെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്

കാർഗിൽ ജില്ലയിലെ ദ്രാസാണ് കശ്മീരിലെ ഏറ്റവും തണുപ്പേറിയ മ്മേഖല

മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അതിശൈതൃത്തിന്റെ പിടിയിലാണ് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഒരു ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് താപനില

പഞ്ചാബിലെ അമൃത്സർ ചണ്ഢീഗഡ് എന്നിവിടങ്ങളിലും ഡൽഹിയിലും ആറ് ഡിഗ്രിക്ക് താഴെയാണ് താപനില

വായ്പ്പകൾ അംഗീകൃത ആസ്തികളായിത്തന്നെ നിലനിൽക്കുന്ന കമ്പനികൾക്കാണ് ഈ സൌകര്യം ലഭിക്കുക

എസ് ടി നടപ്പിലാക്കൽ നോട്ട് നിരോധനം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സൂക്ഷ്മ ക്ഷ്യപ്പുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തീരുമാനം പ്രയോജനപ്പെടും

രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം കാശ്മീരിലെത്തിയത്

ആർ

ഇതേ തുടർന്നാണ് വാഹനത്തേയും ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിലായവരുടെ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചുവരികയാണ്

ശാലയുടെ നടത്തിപ്പുകാരനെന്ന് സംശയിക്കുന്ന ആളിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു

ഇവിടെ നിന്നും പിസ്റ്റളുകളും റൈഫിളുകളും പോലീസ് പിടിച്ചെടുത്തു

സമീപ ഗ്രാമത്തിൽ നിന്നുള്ള വേട്ടക്കാഉരന്ന് സംശയിക്കുന്നവരാണ് അക്രമികളെന്ന് പോലീസ് അറിയിച്ചു